ഇന്ന് നടക്കുന്ന തെലങ്കാന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വിപുലമായ ക്രമീകരണങ്ങൾ

ലക്ഷൃമിടുന്ന കാർഷിക കയറ്റുമതി നയത്തിന് കേന്ദ്രമന്ത്രി സഭ അനുമതി

എണ്ണവില നിശ്ചയിക്കുന്നതിൽ ലോകനേതാക്കളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുമെന്ന് സൌദി അറേബ്യ

ചൈനയേയും അയർലൻഡ് ഇംഗ്ലണ്ടിനെയും നേരിടും

തെലങ്കാന രാഷ്ട്രീയ സമിതിയും ിബ്ിജ്പിയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മൽസരിക്കുന്ന്തെങ്കിൽ കോൺഗ്രസ്സ് റ്റിഡിപി തെലങ്കാന ജനസമിതി സ്പി

എന്നാൽ സിപിഐ എം ഉം ബഫൂജ്ൻ പാർട്ടിയും ബഹുജൻ ഇടത് സഖ്യമായാണ് തെരുണ്ണ്ടുപ്പിനെ നേരിടുന്നത്

ആൽവാർ ജില്ലയിലെ രാംഗാർഗ് നിയമസഭാ സീറ്റിലെ മൽസരം ബി

പി സ്ഥാനാർത്ഥിയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവച്ചിരിക്കുകയാണ്

ഓരോ മണ്ഡലത്തിലും സ്ത്രീകൾക്ക് മാത്രമായുള്ള ഒന്നു വീതം ബൂത്തും തയ്യാറാക്കിയിട്ടുണ്ട്

ഇതാദ്യമായാണ് ആർക്ക് വോട്ട് ചെയ്തു എന്ന് സമ്മതിദായകനെ അറിയിക്കുന്ന വിവിപാറ്റ് മെഷീനുകൾ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത്

പുതിയ നയം കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു മന്ത്രിസഭാ യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് പറഞ്ഞു സുസ്ഥിര വാണിജ്യ നയക്രമത്തിലൂടെ കയറ്റുമതി അവസരങ്ങൾ കർഷകർക്ക് ലഭൃമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

രവി നദിയിൽ നിന്നും പാകിന്യ്മാനീലേയ്ക്കുള്ള നീരൊഴുക്ക് ഇതുവഴി നിയന്ത്രിക്കാനാവും

ഈ വർഷം സെപ്റ്റംബറിലാണ് കരാർ ഒപ്പിട്ടത് ആരോഗ്യപരിപാലനം ആരോഗൃരക്ഷ എന്നീ രംഗങ്ങളിൽ ജപ്പാനുമായുള്ള സഹകരണത്തിനും മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരമായി പരമ്പരാഗത വൈദ്യശാസ്ത്ര രംഗത്ത് ഇരുരാജൃങ്ങൾക്കുമിടയിലെ സഹകരണം വർദ്ധിപ്പിക്കാനുതകുന്നതാണ് കരാർ കൂടാതെ മൊറാക്കോ സിംബാവേ അർമീനിയ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ താജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി വിവിധ മേഖലകളിൽ സഹകരണത്തിനും മന്ത്രിസഭ അനുമതി നൽകി

വിശദാംശങ്ങളുമായി ഗോപകുമാർ

കുതിച്ച് ഉയരുന്ന എണ്ണ വിലിയിൽ ്നിന്ന് ഇന്ത്യൻ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൃക്ത്മായ നയങ്ങളെ സൌദി മന്ത്രി പ്രകീർത്തിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യൻ സൈന്യത്തിന് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്ന് ബിഎസ്എഫ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ഇന്ത്യയിലെ നൂതന സംരംഭങ്ങൾക്കുള്ള ആഗോള മൂലധനം സമാഹരിക്കുക എന്നതാണ് ഈവർഷത്തെ ഉച്ചകോടിയുടെ മുദ്രാവാകൃം രാജ്യത്ത് സ്റ്റാർട്ട് അപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധനം കണ്ടെത്തുന്നതിനുള്ള് പൊതുവേദിയാണ് ഉച്ചകോടി

രാജ്യസുരക്ഷ കാത്തു സൂക്ഷിക്കുന്നതിനിടെ വീര്മൃത്യു വരിച്ച വനിതകൾ ഉൾപ്പെടെയുള്ള ധീര്യോദ്ധാക്കളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ഡിസംബർ ഏഴ് സായുധസേനാ പതാക ദിനമായി ആചരിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സായുധസേനകൾ രക്ഷയ്ക്കായി എത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ ടിറ്ററിൽ കുറിച്ചു ഈ മാസം ഒന്നാം തീയതി മുതൽ സായുധസേനാ വാരമായി ആചരിച്ച് വരികയാണ് ഈ അവസരത്തിൽ സായുധസേനയ്ക്കുള്ള നന്ദിസൂചകമായി സായുധസേനാ പതാകദിന ഫണ്ടിൽ പങ്കുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ജനറൽ ഷെറിങ് ഇന്ത്യാ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചു ഇന്ത്യയും ഭൂട്ടാനും പ്രതിരോധ മേഖലയിൽ സുദൃഢമായ ബന്ധങ്ങളാണ് പങ്കിടുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

അടുത്ത വർഷം ജനുവരി ഒന്നിന് തുടങ്ങി നാല് വർഷ കാലാവധിയിലാണ് ശ്രീമതി

മേഖലയിലെ അംഗരാജ്യങ്ങളിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന യു എൻ സമിതിയാണ് സി ഇ

ആർ

മറ്റൊരു മൽസരത്തിൽ സ്പെയിനും ന്യൂസിലൻഡും രണ്ട് ഗ്ലോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

രാത്രി ഏഴിന് നടക്കുന്ന മറ്റൊരു മൽസരത്തിൽ അയർലന്റ് ഇംഗ്ലണ്ടിനെ നേരിടും

എൻ പൊതുസഭയിൽ തിരിച്ചടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നതിൽ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു

പ്രളയത്തെ തുടർന്നുള്ള പുനർനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനച്ചടങ്ങില്ലാതെയാണ് ഇത്തവണ് മേ്ള